പ്രയോജനപ്പെടുത്തണമെന്ന് ചലച്ചിത്ര പ്രവർത്തകരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

അഞ്ച് ഇടങ്ങളിൽ ഉൾപ്പെടെ രാജ്യത്ത് വിവിധ മണ്ഡലങ്ങളിലെ ഉപതിരഞ്ഞെടുപ്പും നാളെ

സർഗാത്മകതയുടെ ശക്തി രാഷ്ട്രനിർമാണത്തിന് പ്രയോജനപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി ചലച്ചിത്ര പ്രവർത്തകരോട് ആവശ്യപ്പെട്ടു

രാജ്യം കെട്ടിപ്പടുക്കുന്നതിനും ഐക്യം ഊർട്ടിഉറപ്പിക്കുന്നതിനും ചലച്ചിത്ര ലോകത്തിന്റെ സംഭാവന നിമ്പ്തുലമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

ഷാരൂഖ് ഖാൻ ആമീർ ഖാൻ രാജ്കുമാർ ഹിരാനി അനുരാഗ് ബസു കങ്കണാ റണാവത്ത് തുടങ്ങി ഹിന്ദി ചലച്ചിത്ര ലോകത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു വിനോദ സഞ്ചാരികളെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്നതിനുള്ള കൂടുതൽ മാർഗ്ഗങ്ങൾ ആലോചിക്കാനാണ് ഈ ഒത്തുചേരലെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ചലച്ചിത്രമേഖലയിലുള്ളവരോട് സ്റ്റാച്യൂ ഓഫ് യൂണിറ്റിയും ദണ്ഡി മ്യൂസിയവും സന്ദർശിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു ചൈനീസ് പ്രസിഡന്റ് ഷിജിംഗ് പിങ്ങും പ്രധാനമന്ത്രിയും അനൌദ്യോഗിക ഉച്ചകോടി നടത്തിയതിനുശേഷം മഹാബലിപുരത്തേക്ക് വിനോദ സഞ്ചാരികൾ എത്തുന്നത് വർദ്ധിച്ചതായി തമിഴ്നാട് മുഖ്യമന്ത്രി എടപ്പാടി കെ

കുട്ടികൾക്ക് ചരിത്രപരമായ വസ്തുതകൾ കണ്ടറിയാനുള്ള അവസരം നൽകിയാണ് മൾട്ടിമീഡിയ പ്രദർശനം ഒരുക്കിയത് സത്യവും അക്രമരാഹിത്യവും എന്ന ഗാന്ധിജിയുടെ സന്ദേശം ലോകം മുഴുവൻ വ്യാപിക്കുകയാണെന്ന് പ്രദർശനം കാണാനെത്തിയ ഫ്രാങ്ക്ഫർട്ട് കോൺസൽ ജൂനറൽ ഓഫ് ഇന്തൃ പ്രതിഭാ പാർക്കർ പറഞ്ഞു വാർത്താ വിതരണ പ്രിക്ക്ഷേപണ മന്ത്രാലയം എല്ലാ വർഷവും ഫ്രാങ്ക്ഫർട്ടിലെ പുസ്തകുമേള്യിൽ പങ്കെടുക്കാറുണ്ടെങ്കിലും ഇതാദ്യമായാണ് മേളയിൽ മൾട്ടിമ്പീഡീയ പ്രദർശനം സംഘടിപ്പിച്ചത് അഞ്ച് ദിവസമായി നടക്കുന്ന പ്രദ്ർശന്ം ഇന്ന് സമാപിക്കും

വാഷിംഗ്ടണിൽ അന്താരാഷ്ട്ര നാണയനിധിയുടെ വാർഷിക യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീമതി നിർമ്മലാ സീതാരാമൻ

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും ഫിലിപ്പെയിൻസ് പ്രസിഡന്റ് റോഡ്രിഗോ ഡ്യൂട്ടേർട്ടും തമ്മിൽ നടത്തിയ ചർച്ചയിൽ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കാനും തീരുമാനിച്ചു

അഞ്ചു ദിവസത്തെ സന്ദർശനത്തിനായി വ്യാഴാഴ്ചയാണ് രാഷ്ട്രപതി ഫിലിപ്പെയിൻസിൽ എത്തിയത് ഇരുരാജൃങ്ങളും തമ്മിൽ സമുദ്ര സുരക്ഷാമേഖലയിലും പ്രതിരോധ മേഖലയിലും കൂടുതൽ സഹകരിക്കാനും ധാരണയായതായി വിദേശകാരൃ വക്താവ് രവീഷ് കുമാർ ട്വിറ്ററിലൂടെ അറിയിച്ചു മനിലയിൽ സംഘടിപ്പിച്ച നാലാമത് ആസിയാൻ ഇന്ത്യ വ്യാപാര ഉച്ചകോടിയെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു

ദാവൂദ് ഇബ്രാഹിമുമായി ബന്ധ്മുണ്ടെന്ന ആരോപണത്തെത്തുടർന്നാണ് ഡി എച്ച്

എല്ലുമായി ബസ്ഖപ്പട്ട പതിനാലിടങ്ങളിൽ ഇ

എച്ച്

പരസ്യപ്രചരണം ഇന്നലെഅവസാനിച്ചു

ജെ പി ശിവസേന സഖ്യവും കോൺഗ്രസ് എൻ സി

എസ് ബി

പി സി

എം സിപി ഐ എന്നീ പാർട്ടികളും മത്സര രംഗത്തുണ്ട്

ഹരിയാനയിൽ ബി ജെ

ഡി ആം അദ്മി പാർട്ടി സ്വരാജ് ഇന്ത്യ പാർട്ടി ജെ

പി ബി

പി എൽ

ഇതോടൊപ്പം സിക്കിമിൽ മൂന്ന് സീറ്റിലും പഞ്ചാബിലും ആസാമിലും നാല് സീറ്റിലും തമിഴ്നാട് രാജസ്ഥാൻ ഹിമാചൽപ്രദേശ് എന്നിവിടങ്ങളിൽ രണ്ട് സീറ്റിലും ഒഡീഷ തെലങ്കാന മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് മേഘാലയ പുതുച്ചേരി അരുണാചൽപ്രദേശ് എന്നിവിടങ്ങളിൽ ഓരോ സീറ്റിലും ബ്ലീഹാറിലെ സമസ്തിപൂർ മഹാരാഷ്ട്രയിലെ സത്താറാ എന്നീട് ല്ലോക്സഭാ സീറ്റുകളിലും ഉപതിരഞ്ഞെടുപ്പ് നടക്കും

മഞ്ചേശ്വരം എറണാകുളം കോന്നി അരൂർ വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിലാണ് ഉപതിരഞ്ഞടുപ്പ് അഞ്ച് മണ്ഡലങ്ങളിലായി ഒമ്പത് ലക്ഷത്തി അമ്പത്തിയേഴായിരത്തി അഞ്ഞൂറ്റി മൂന്ന് പേരാണ് ആകെ വോട്ടർമാർ നാളെ രാവിലെ ഏഴ്മുതൽ വൈകിട്ട് ആറ് വരെയാണ് വോട്ടെടുപ്പ് പരസൃപ്രചാരണം സമാപിച്ചതോടെ മണ്ഡലത്തിന് പുറത്ത് നിന്നെത്തിയ രാഷ്ട്രീയ പ്രവർത്തകർ മണ്ഡലം വിടണമെന്ന് മുഖ്യതിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു

ഈ പരമ്പരയിലെ രോഹിത്തിന്റെ മൂന്നാമത്തെ സെഞ്ചറിയാണിത് ടോസ് നേടി ബാറ്റിംങിന് ഇറങ്ങിയ ഇന്തൃയ്ക്ക് ആദ്യ മൂന്ന് വിക്കറ്റുകൾ തുടക്കത്തിൽ തന്നെ നഷ്ടമായി ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി റബാഡ രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി രണ്ട് വിജയങ്ങളുമായി പരമ്പര ഇന്ത്യ സ്വന്തമാക്കിയിട്ടുണ്ട്

ഐ എസ് എം

ഗെയിംസിൽ വിവിധ വിഭാഗങ്ങളിലായി ഇന്ത്യയുടെ പ്ര്യോഗസെനിക കായിക താരങ്ങളാണ് മാറ്റുരയ്ക്കുന്നത്

സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നൂറോളം നിക്ഷേപകർ ആർ

ഐ യ്ക്കെതിരെയും പി എം സി ബാങ്കിനെതിരെയും മുദ്രാവാക്യങ്ങൾ മുഴക്കിയാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത്

എം സി ബാങ്കുകളിൽ നിന്നും പണം പിൻവലിക്കുന്നത് റിസർവ്വ് ബാങ്ക് ആയിരം രൂപയായി നിജപ്പെടുത്തിയിരുന്നു

കേസുമായി ബന്ധപ്പെട്ട് അഞ്ച്പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്

മൂന്ന് ദിവസമായി തുടരുന്ന ജനകീയ പ്രതിഷേധങ്ങളെ തുടർന്നാണ് നടപടി

ബേയ്റൂട്ടിലും ട്രിപ്പോളിയിലും പതിനായിരക്കണക്കിന് പേരാണ് പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത് നാല് മന്ത്രിമാരാണ് ഇതുമായി ബന്ധപ്പെട്ട് രാജിവച്ചത് പ്രശ്നം പരിഹരിക്കാൻ ഗവൺമെന്റ് വേണ്ട നടപടി സ്വീകരിച്ചില്ലെന്ന് ലബനീസ് ഫോഴ്സസ് പാർട്ടിയുടെ തലവൻ സമീർ ജിയഗേ പറഞ്ഞു രാജ്യത്തിന്റെ അടിസ്ഥാന വികസനം പോലും ഇല്ലാതാക്കുന്ന നയങ്ങളാണ് നിലവിലുള്ളതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി

തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എറണാകൂളം ഇ്ടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഇന്ന് യെല്ലോ അല്ട്ട്ട്